രാജ്യത്തെ കോവിഡ് പ്രതിരോധ നടപടികൾ പ്രധാനമന്ത്രി അവലോകനം ചെയ്തു വൃക്തി ശുചിത്വത്തിനും സാമൂഹ്യ അച്ചടക്കത്തിനും ജനങ്ങൾ പ്രാധാനൃം നൽകണമെന്ന് നരേന്ദ്രമോദി

കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഹ്രസ്വകാല ആരോഗൃ ഇൻഷുറൻസ് പദ്ധതികൾ ആവിഷ്ക്കരിക്കാൻ ഇൻഷുറൻസ് നിയന്ത്രണ അതോറിറ്റിയുടെ അനുമതി

സർവ്വകലാശാല പരീക്ഷകളുടെ നടത്തിപ്പ് സംബന്ധിച്ച് കേന്ദ്ര മാനവിഭവശേഷി മന്ത്രാലയം വിശദമായ മാർഗ്ഗരേഖ പുറത്തിറക്കി

വിവിധ സംസ്ഥാനങ്ങളിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളും രോഗവ്യാപനവും വിലയിരുത്തിയ പ്രധാനമന്ത്രി വൃക്തിശുചിത്വത്തിനും സാമൂഹ്യ അച്ചടക്കത്തിനും ജനങ്ങൾ പ്രാധാന്യം നൽകണമെന്ന് അഭ്യൂർത്ഥിച്ചു രോഗവ്യാപനം സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ അപ്പബ്ബോധം സൃഷ്ടിക്കേണ്ട തിന്റെ ആവശ്യകത പ്രധാനമന്ത്രി ആപർത്തിച്ചു

ആലപ്പുഴ ജില്ലയിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തത്

കൊറോണ കവച് എന്ന ഇൻഷുറൻസ് പോളിസിക്കിളിലൂടെ കൊറോണ രോഗ ചികിത്സ ചെലവുകൾക്ക് പരിർക്ഷ ലഭിക്കും

കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആരോഗൃ മന്ത്രാലയം എന്നിവ സംയുക്തമായാണ് ഇത് തയ്യാറാക്കിയത് കോവിഡ് പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികളുടെ സുരക്ഷ അവസരങ്ങളിലെ തുല്യത എന്നിവ ഉറപ്പുവരുന്നതാണ് മാർഗ്ഗരേഖ

ജി

സി മാനദണ്ഡങ്ങൾ പുറത്തിറക്കിയിരുന്നു

എന്നാൽ റിസർവ് ബാങ്കിന്റെ ബഹുമുഖ സമീപനം കോവിഡ് ബാങ്കിംഗ് മേഖലയ്ക്ക് ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്നും മോചനം നേടാൻ സഹായിക്കൂട്ടിമെന്ന് ശ്രീ

സംസ്ഥാനങ്ങളുമായി ചേർന്ന് വെട്ടുകിളി നിയന്ത്രണ കേന്ദ്രമാണ് ഇതിന് നേതൃത്വം നൽകുന്നത്

കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി പ്രവർത്തനങ്ങൾ ഊർജ്ജിതപ്പെടുത്തിയിട്ടുണ്ട്

ഹെലികോപ്റ്റർ മുഖേന കീടനാശിനി തളിക്കുന്ന പദ്ധതിയും ഊർജ്ജിതപ്പെടുത്തി

നാലാം തവണയാണ് പീപ്പിൾസ് ആക്ഷൻ പാർട്ടി അംഗമായ ലീ ഹ്സിയൻ ലൂംഗ് പ്രധാര്ഭ്മന്ത്രിയാകുന്നത് സിംഗപ്പൂരിലെ ജനതയ്ക്കും ശ്രീ മോദി ഐശ്ശ്യ ്സമൃദ്ധി ആശംസിച്ചു